വെച്ചു ഇന്ത്യ വെസ്റ്റിൻഡീസ് നാലാം ഏകദിനം ഇന്ന് മുംബൈയിൽ

ശബരിമല സംഘർഷത്തിലെ പോലീസ് നടപടി വിശ്വാസികൾക്ക് എതിരല്ലെന്നും ചിലർ മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പാലക്കാട് കോട്ടമൈതാനത്ത്നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സ്ത്രീകളോട് ശബരിമലയിൽ പോകാൻ എൽ

എഫ് ആവശൃപ്പെട്ടിട്ടില്ലെന്നും സുപ്രീം കോടതിയുടെ ഭരണ ഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശ്വാസികൾക്കും മാധ്യമപ്രവർത്തകർക്കും എതിരെ സംഘ പരിവാറിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയ ക്രിമിനലുകൾക്കെതിരെയാണ് നടപടി വിശ്വാസം അനുസരിച്ചു ജീവിക്കുന്നതിന് എല്ലാ സഹായവും ചെയ്യും എന്നതാണ് ഗവൺമെന്റ് നയം ഇനി ശബരിമലയിൽ ഒരു അക്രമവും അനുവദി ക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

ബാക്കിയുള്ളവർക്ക് ജാമ്യം ലഭിച്ചു ് അമിത്ഷായുടെ കണ്ണൂരിലെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാ ണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള പറഞ്ഞു പിണറായി ഗവൺമെന്റിനെ കേന്ദ്രമല്ല ജനങ്ങൾ വലിച്ചുതാഴെയിടുമെന്നാണ് അമിത് ഷാ പറഞ്ഞതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ശബരിമല വിഷയ ത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിയുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു

് ് ് ് ് ് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി സംബന്ധിച്ച് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ പരാമർശം ഭരണഘടനാ സ്ഥാപനങ്ങളെ ആദ്യം ദുർബലപ്പെടുത്തി പിന്നീട് ഇല്ലായ്മ ചെയ്യാനുള്ള ബി ജെ പിയുടെ ലക്ഷ്യ മാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി സി ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ തുടങ്ങി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇടപെട്ട തിന്റെ പട്ടിക വലുതാണെന്നും ഇപ്പോൾ നിയമം അറിയാതെ സുപ്രീംകോടതിയിലും ഇടപെടുകയാണെന്നും പാർട്ടി വക്താവ് അഭിഷേക് സിംഗ്വി ന്യൂഡൽഹിയിൽ പറ ഞ്ഞു ് ് ് ് ് ് ് ് ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി മറികടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനമായിരുന്നു അമിത്ഷാ യിൽ നിന്ന് വിശ്വാസികൾ പ്രതീക്ഷിച്ചിരുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകസ മിതി അംഗം ഉമ്മൻചാണ്ടി പറഞ്ഞു കേന്ദ്രം ഓർഡിനൻസ് ഇറക്കിയാൽ പ്രശ്ന ത്തിന് പരിഹാരമാകുമെന്നും എന്നാൽ എരിതീയിൽ എണ്ണയൊഴിക്കുന്ന പ്രസ്താ വനയാണ് അമിത്ഷാ നടത്തിയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗവൺമെന്റിനെ വലിച്ച് താഴെയിടാൻ അദ്ദേഹത്തിന്റെ ആവശ്യമില്ലെന്നും സംസ്ഥാനത്തെ ജനങ്ങൾ ജനാധിപത്യപരമായി അതു നോക്കിക്കൊള്ളുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു കൊച്ചി യിൽ കെ പി എൽ സേബിയൂസ് മാസ്റ്റർ നാലാമത് പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉമ്മൻചാണ്ടി

വീരേന്ദ്രകുമാർ എം

ഇത് സേച്ഛാധിപത്യനിലപാടാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദപരാമർശത്തെ തുടർന്ന് അറസ്റ്റി ലായ രാഹുൽ ഈശ്വറിന് എറണാകുളം ജൂഡീഷ്യൽ ഒന്നാം ക്സാസ് മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു ആഴ്ചയിലൊരിക്കൽ സ്റ്റേഷനിൽ ഹാജരാകണം അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെ യാണ് ജാമ്യം നൽകിയത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചാൽ രക്തം വീഴ്ത്തി സന്നിധാനം അശുദ്ധമാക്കാൻ തയ്യാറായിരുന്നുവെന്ന വിവാദപരാമർശത്തെ തുടർന്ന് കൊച്ചി സിറ്റി പൊലീസിന് ലഭിച്ച പരാതിയിൽ തിരുവനന്തപുരത്തുനിന്നാണ് ഇന്നലെ രാവിലെ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ് ് ് ് ് ് ് ശബരിമലയുമായോ തന്ത്രികൂടുംബവുമായോ രാഹുൽ ഈശ്വറിന് ഒരു ബന്ധവുമില്ലെന്ന് താഴമൺ തന്ത്രി കുടുംബത്തിനുവേണ്ടി കണ്ഠരര് മോഹനര് പത്തനംതിട്ടയിൽ അറിയിച്ചു ശബരിമല്യിൽ കലാപത്തിന് പദ്ധതിയിട്ടെന്ന് ആരോ പിച്ച് രാഹുലിനെ വീണ്ടും പൊലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് തന്ത്രി കുടുംബം വിശദീകരണക്കുറിപ്പ് ഇറക്കിയത് വിശ്വാസത്തിന്റെ പേരിൽ സംഘർഷ ങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കരുതെന്നും രാഹുൽ ഈശറിന്റേതായി വരുന്ന വാർത്തകളും പ്രസ്താവനകളും തന്ത്രി കുടുംബത്തിന്റേതാണെന്ന തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ടെന്നും വാർത്താകുറിപ്പിൽ പറയുന്നു ദേവസ്വം ബോർഡുമായി നല്ല ബന്ധത്തിലാണ് തന്ത്രികുടുംബം ഇതുവരെ പ്രവർത്തിച്ചതെന്നും അത് തുടരുമെന്നും തന്ത്രി കുടുംബം വ്യക്തമാക്കി ് ് ് ് ് ് ് ് അയോധ്യയിലെ രാമജന്മഭൂമി ബാബ്റി മസ്ജിദ് ഭൂമി തർക്ക കേസ് സുപ്രീം കോടതിയുടെ പുതിയ ബഞ്ച് ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

ജോസഫ് എന്നിവരടങ്ങിയ ബഞ്ചാണ് കേസ് പരിഗണിക്കുക ബാബ്റി മസ്ജിദ് നിലനിന്ന അയോധ്യയിലെ തർക്കഭൂമി സുന്നി വഖഫ് ബോർഡിനും നിർമ്മോഹി അഖാഡയ്ക്കും രാംലല്ലയ്ക്കും തുല്യമായി വീതിച്ചുനൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി കളാണ് മൂന്നംഗബഞ്ച് പരിശോധിക്കുന്നത്

സി ബി ഐ അന്വേഷിക്കുന്ന ലാവ്ലിൻ കേസുപയോഗിച്ച് കേന്ദ്രവും ബി ജെ പിയും പിണറാ യിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

യുദ്ധം പോലെ അസാ ധാരണ സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ചെയ്യാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ എന്തു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് മുല്ല പ്പള്ളി ചോദിച്ചു ഇടതുഗവൺമെന്റ് സമ്പൂർണ്ണ പരാജയമാണെങ്കിലും അതിനെ പിരിച്ചുവിടുമെന്ന ബി ജെ പിയുടെ ഭീഷണി സംസ്ഥാനത്ത് വിലപ്പോകില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു

പാകിസ്ഥാനും പങ്കുവെച്ചു മസ്കറ്റിൽ നടക്കേണ്ടിയിരുന്ന ഫൈനൽ കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ച സാഹചർ്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സംയുക്ത ജേതാക്കളായത്

ക്കും ഉച്ചയ്ക്ക് ഒന്നര മുതലാണ് മത്സരം അഞ്ച് മത്സര പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച ഇരൂടീമുകൾക്കും ഇന്നത്തെ കളി നിർണ്ണായകമാണ്

ത്തിൽ ഇന്ന് ജംഷഡ്പൂർ എഫ് സിയെ നേരിടും

തുടർച്ചയായ രണ്ട് സമനിലകൾക്കുശേഷം വിജയം ലക്ഷ്യമി ട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കിറങ്ങുന്നത്

കൾക്ക് ഗോവ പൂനെ സിറ്റിയെ പരാജയപ്പെടുത്തി

കേരളം കർണാടക തമിഴ്നാട് പശ്ചിമബംഗാൾ ഒഡീഷ മധ്യപ്രദേശ് ഡൽഹി ഉത്തർപ്രദേശ് എന്നീ എട്ട് തപാൽ സർക്കിളുകളിലെ ടീമു കൾ ടൂർണ്ണമെന്റിൽ പങ്കെടുക്കും

് ് ് ് ് ് ് ് മട്ടന്നൂരിനെ മനോഹരമായ ആസൂത്രിത നഗരമാക്കി രൂപപ്പെടുത്തി യെടുക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു മട്ടന്നൂരിന്റെ സമഗ്ര വികസനത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കിറ്റ്കോ യെ ചുമതലപ്പെടുത്തിയ തായും മന്ത്രി അറിയിച്ചു കണ്ണൂർ വിമാനത്താവളത്തി ന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മട്ടന്നൂർ നഗര വിക്സനവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റേഡിയം അസാപ് കേന്ദ്രം തുടങ്ങിയവ മട്ടന്നൂരിൽ ആരംഭിക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുക യാണെന്നും മന്ത്രി അറിയിച്ചു

മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു കുണ്ടറ മണ്ഡലത്തിൽ പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മേഖല യാണ് രാഷ്ട്രീയമെന്നും എന്നാൽ അതേക്കുറിച്ച് പുതുതലമുറയിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും വേണ്ടത്ര ധാരണയില്ലെന്നും കണ്ണൂർ ജില്ലാ കലക്ടർ മീർ മുഹമ്മദലി പറഞ്ഞു ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച ടേക്കോഫ് കരിയർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയപ്രവർത്തനം ഒരു തൊഴിലായി കാണേണ്ടതാണോ എന്നതായിരുന്നു പ്രധാന ചർച്ച വിഷയം രാഷ്ട്രീയ പ്രവർത്തനം ഒരു വരുമാന മാർഗമായി കാണരുതെന്നും മറ്റു തൊഴിലുകളോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോവുകയാണ് അഭികാമ്യമെന്ന അഭിപ്രായമാണ് പൊതുവായി ഉയർന്നുവന്നത്

നീർച്ചാലിലെ ഹമീദ് ആണ് മരിച്ചത് എഞ്ചിൻ ഓഫായതിനെതുടർന്നാണ് തോണി മറിഞ്ഞതെന്ന് കരുതുന്നു

ഭരണത്തിലേറിയ ആളാണ് പിണറായി വിജയനെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കാസർകോട്ട് പറഞ്ഞു ബി ജെ പി മധൂർ പഞ്ചായത്ത് കമ്മിറ്റിക്കായി നിർമിച്ച മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കു കയായിരുന്നു അദ്ദേഹം

രീതിയിൽ കോച്ചുകൾ ക്രമീകരിക്കണമെന്നും എല്ലാ ട്രെയിനുകളിലും വികലാംഗ കോച്ചുകൾ ഉണ്ടാകണമെന്നും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു അപകടത്തിൽപെടുന്ന പോലീസുകാരുടെ കുടുംബ ത്തിന് കൈത്താങ്ങാകുന്ന പോലീസ് അസോസിയേഷ ന്റെ കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാ ണെന്ന് ജോയ്സ് ജോർജ് എം പി പറഞ്ഞു അപ കടത്തിൽ മരിച്ച തൊടുപുഴ ട്രാഫിക് യൂണിറ്റിലെ പോലീസുദ്യോഗസ്ഥൻ കെ ജി ബിനുമോന്റെ കുടുംബ സഹായ ഫണ്ട് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം

കളിൽ പങ്കെടുക്കും എറണാകുളം ഗസ്റ്റ് ഹൌസിൽ അബുദാബി ശക്തി അവാർഡ് വിതരണവും പുസ്തക പ്രകാശനവും അദ്ദേഹം നിർവ്വഹിക്കും കലൂർ സ്റ്റേഡിയ ത്തിൽ എൽ ഡി എഫിന്റെ റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വെള്ള പ്പൊക്ക ദുരിതാശാസ ഫണ്ട് ശേഖരണാർത്ഥം സ്റ്റീഫൻ ദേവസ്യ അവതരിപ്പിക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവ്വഹിക്കും